സാമ്പത്തിക സർവ്വേ ്ഇന്നും ബജറ്റ് നാളെയും അവതരിപ്പിക്കും

രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി

പ കൊല്ലത്ത് ദേശീയ സീനിയർ വനിതാ ഹോക്കി എ ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിൽ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം

അയൽ രാജ്യത്ത് മതപരമായ പീഡനം നേരിട്ട ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഗാന്ധിജിയുടെ സ്ഥപ്നമായിരുന്നുവെന്നും രാഷ്ട്രപതി അനുസ്മരിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം നിലനിർത്തിക്കൊണ്ടായിരിക്കും നിയമം നടപ്പാക്കുകയെന്നും ശ്രീ

ഇതുവഴി ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് നീത്യൂ ഉൾപ്പാക്കാൻ കഴിഞ്ഞെന്നും ശ്രീ

ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പാർലമെന്റിന്റെ ് ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി

ഇന്ത്യയെ അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥയായി ഉയർത്താൻ തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു

ടി നടപ്പാക്കിയത് നികുതി നിർവ്വഹണ രംഗത്ത് സ്വാഗതാർഹമായ മാറ്റങ്ങൾ വരുത്തിയെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തെ കരഘോഷത്തോടെ ഭരണപക്ഷം സ്വാഗതം ചെയ്തപ്പോൾ പൌരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള പരാമർശങ്ങളോട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു

സമ്മേളന കാലത്ത് സഭയ്ക്ക് മുന്നിലെത്തുന്ന എല്ല്ക് കാര്യങ്ങളിലും തുറന്ന ചർച്ചയ്ക്ക് ഗവൺമെന്റ് ഒരുക്കമാണെന്റ് പ്രെധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

ജില്ലകളിൽ ഏത് സാഹചര്യവും നേരിടാനുള്ള സൌകര്യങ്ങൾ സജ്ജമാണ് കൊറോണ ബാധയുള്ള രാജ്യങ്ങളിൽ നിന്നും എത്തിയവർക്ക് പുറമേ പൊതുജനങ്ങളും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട് പൊതുജനാരോഗ്യ വിഭാഗം അഡീഷണൽ ഡയറക്ടർ ഡോ

മീനാക്ഷി ആകാശവാണി വാർത്തകളോട്

തൃശൂരിൽ നിന്ന്ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്

സ്വകാര്യ ആശുപത്രികളിലൂൾപ്പെടെ ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി

പാലക്കാട് ജില്ലയിൽ രണ്ട് ഐസൊലേഷൻ വാർഡുകൾ പ്രവർത്തനസജ്ജമാക്കി ജില്ലാ ആശുപത്രിയ്ക്ക് പുറമേ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലുമാണ് വാർഡ് ഒരുക്കിയിട്ടുളളത്

കൊറോണ ഉൾപ്പെടെയുള്ള എല്ലാത്തരും പ്കർച്ചവ്യാധികളെയും നേരിടാൻ ജില്ലയിലെ ആരോഗ്യമേഖല്ല് സ്ജ്ജമെന്ന് യോഗം വിലയിരുത്തി

ലോകം മുഴുവൻ ജാഗ്രത പാലിക്കേണ്ടതുണ്ടെന്നും രാജ്യങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്

കേന്ദ്ര സംഘം അടുത്ത ദിവസം ജില്ലയിലെത്തും

പ്രമേയത്തിന്റെ ഉള്ളടക്കം ഗവൺമെന്റ് അഗീകരിച്ചിട്ടില്ലെന്ന് മന്ത്രി എ

മികച്ച സാമാജികനും പൊതു പ്രവർത്തകനുമായിരുന്നു തോമസ് ചാണ്ടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു

മേഴ്സിക്കുട്ടിയമ്മ കൊല്ലം നീണ്ടകര ശക്തികുളങ്ങര മത്സ്യബന്ധന തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് ഈ വർഷം തന്നെ ബോട്ട് ത്തിർമാണ യാഡിന് തുടക്കം കുറിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയിമ്മ പറഞ്ഞു മോട്ടോർ കമ്പനിയുമായി സഹകരിച്ച് നിർമിച്ച് ഒർഫ്ബർ വള്ളത്തിന്റെ പരീക്ഷണ യാത്ര മന്ത്രി ഉദ്ഘാടനം ചെയ്തു

സി കോളനി നിവാസികൾക്ക് കുടിവെള്ളം നിഷേധിച്ചെന്ന പരാതിയിൽ അന്വേഷണത്തിനായി എസ് സി എസ് ടി കമ്മീഷൻ വൈസ് ചെയർമാൻ ഡോ

തുടർന്ന് മലപ്പുറത്ത് ജില്ലാതല ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേരുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു കാർഡ് എ

വൈ തെറ്റായ വിവരങ്ങൾ നൽകി അനർഹമായി നേടിയ മുൻഗണനാഎ

വിഭാഗത്തിൽപ്പെട്ട കാർഡുകൾ ഉത്തരമേഖല റേഷനിങ് ഡെപ്യൂട്ടി കൺട്രോളർ നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തു കുറ്റിപ്പുറം തിരുന്നാവായ എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാർഡുകൾ പിടിച്ചെടുത്തത്

പ്രി ഡിവിഷൻ ചാമ്പ്യൻഷിപ്പിലെ സെമിഫൈനൽ മത്സരങ്ങൾ ഉച്ചയ്ക്കുശേഷം ആശ്രാമം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കും

വൈകിട്ട് നാലിന് സ്റ്റീൽ പ്താന്റ് സ്പോർട്സ് ബോർഡ് ബംഗളൂരു ഹോക്കി അസോസിയേഷനുമായി ഏറ്റുമുട്ടും ബീച്ച് ഗെയിംസ് മലപ്പുറം സംസ്ഥാനത്തിന്റെ കടലോര മേഖലയിലെ കായിക വികസനത്തിന് ഉണർവ് നൽകുന്നതിനായി നാളെ മുതൽ സംഘടിപ്പിക്കുന്ന ബീച്ച് ഗെയിംസിന്റെ സംസ്ഥാനതല മത്സരങ്ങളുടെ പ്രചരണാർത്ഥം ഇന്ന് വൈകിട്ട് മലപ്പുറം പൊന്നാനി ഹാർബറിൽ ദീപശിഖാ സംഗമം സംഘടിപ്പിക്കും